പ്രവർത്തനങ്ങൾ ഊർജ്ജിതം ആരോഗൃ വെല്ലുവിളികൾ നേരിടാൻ കേന്ദ്രം മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു

ചിതാഭസ്മം നിമജ്ജനം ക്ഷെയ്യാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബി ജെ

ഇന്ത്യ വിജയത്തിലേക്ക്

കൂടുതൽ വിവരങ്ങളുമായി വിനോദ് വോയിസ് പ്രളയ ജലമിറങ്ങിതുടങ്ങിയതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ അവ്വസാനിപ്പിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലാണ് അധികൃതർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിവിധ ഇടങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടവരെ മുഴുവൻ ക്യാമ്പുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഇവിടങ്ങളിൽ കഴിയുന്നവർക്ക് വൈദ്യസഹായം എത്തിക്കുക പകർച്ചവ്യാധികൾ വരാതെ സൂക്ഷിക്കുക

ദുരിതത്തെ തുടർന്ന് മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കും മറ്റ് അസുഖ ബാധിതർക്കും ആവശ്യമായ വൈദ്യസഹായം നൽകാൻ ഡോക്ടർമാരുടെ സേവനവും ക്യാമ്പുകളിൽ ലഭ്യമാക്കി വരുന്നു ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് എലിപ്പനി പോലുള്ള പകർച്ച വ്യാധികൾ വരാതിരിക്കാനുള്ള പ്രതിരോധ മരുന്നുകളും നൽകുന്നുണ്ട് പ്രളയത്തെത്തുടർന്ന് തടസ്സപ്പെട്ടിരുന്ന റോഡ് ഗതാഗതം ഏറെക്കുറെ പുനസ്ഥാപിച്ചു കഴിഞ്ഞു

എസ് ആർ ടി സി ദീർഘ ദൂര സർവ്വീസുകൾ ആരംഭിച്ചു ഉൾപ്രദേശങ്ങളിലേക്കുള്ള റോഡ് ഗതാഗതം സുഗമമാക്കാൻ ഊർജ്ജിത ശ്രമങ്ങൾ നടന്നു വരുന്നു

സാംക്രമിക രോഗങ്ങൾ പടരുന്നത് തടയാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ സി

സി

സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖ്യലിയിലെ സ്ഥിതിഗതികൾ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി ജെ

നിലവിലെ സ്ഥിതി നിരീക്ഷിച്ച് വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്രളയു ബാധിത പ്രദേശങ്ങളിൽ ഇതുവരെ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര ആരോഗൃമന്ത്രി അറിയിച്ചു

ജെ

ഇതിന്റെ മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർട്ടി അധ്യക്ഷൻ അമിത് ഷായും ചേർന്ന് ചിതാഭസ്മം സംസ്ഥാന അധ്യക്ഷന്മാർക്ക് കൈമാറി ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് സുഷമ സ്വരാജ് അടൽ ബിഹാരി വാജ്പേയിയുടെ അടുത്ത ബന്ധുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഹരിദ്വാറിൽ ഗംഗാ നദിയിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഞായറാഴ്ച ചിതാഭസ്മം നിമജ്ജനം ചെയ്തിരുന്നു

വിമാന യാത്രകൾക്ക് സബ്സിഡി നൽകാൻ വിഭാവന ചെയ്യുന്ന എയർ കണക്ടിവിറ്റി ഫണ്ടും കരട് പദ്ധതി ലക്ഷ്യമിടുന്നു വിവിധ സംസ്ഥാന ഗവൺമെൻുകൾക്ക് ഇതിലേക്ക് സംഭാവന നൽകാവുന്നതാണ് വിമാന മാർഗ്ഗം ബന്ധിപ്പിക്കേണ്ട വിവിധ സ്ഥലങ്ങൾ സംസ്ഥാനങ്ങൾക്ക് ശുപാർശ ചെയ്യാം

അതേസമയം ശ്രീനഗറിൽ പ്രതിഷേധക്കാരുമായി ഏറ്റുമുട്ടലും കല്ലേറും ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്

അനന്ത്നാഗ് ജില്ലയില്പുഴും സമാന സംഭവങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്

ചെയർമാൻ അജയ് ഭൂഷൻ പാണ്ഡെ ആണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് ആധാർ കേന്ദ്രങ്ങളിൽ പേരും വിരലടയാളവും നൽകി ആധാർ സർട്ടിഫിക്കറ്റിന്റെ പ്രിന്റുകൾ നേടാവുന്നതാണെന്നും ചെയർമാൻ അറിയിച്ചു

കള്ളപ്പണം കവർച്ച എന്നീ കൂറ്റങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചയാണ് ഇയാൾ ലണ്ടനിൽ അറസ്റ്റിലായത്

ബി

കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള ഗൂഢാലോചന തട്ടിപ്പ് തീവ്രവാദം മയക്കുമരുന്ന് കടത്ത് എന്നീ കേസുകളിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് വെസ്റ്റ് മിനിസ്റ്റേഴ്സ് മജിസ്ട്രേറ്റ് കോടതി നിരീക്ഷിച്ചു സുരക്ഷാ കാരണങ്ങളാൽ ഹർജിയിന്മേലുള്ള വാദം റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങളെ അനുവദിക്കരുതെന്ന് പ്രതിഭാഗം വാദിച്ചു ബ്രിട്ടന് തുറന്ന നിയമ വ്യവസ്ഥയാണെന്നും അതിനാൽ പ്രതിഭാഗത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും കോടതി വൃക്തമാക്കി ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയിലെ മുതിർന്ന അംഗമാണ് ജാബിർ മോത്തി

ഇക്കാര്യത്തിൽ പരിസരവാസികളുടെ ഉത്കണ്ഠ സംസ്ഥാന ഗവൺമെന്റ് പരിഗണിക്കേണ്ടതുണ്ടെന്ന് കോടതി വിലയിരുത്തി നിലവിലുള്ള നിയമമനുസരിച്ചും ഇക്കാര്യത്തിൽ അന്തിമ വിധി പ്രഖ്യാപിക്കുമെന്ന് കോടതി വൃക്തമാക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാരത മാതാ പരിയോജന പദ്ധതി പ്രകാരം ഏറ്റെടുത്തിട്ടുള്ള എട്ട് പദ്ധതികളിൽ ഒന്നാണ് ചെന്നൈ സേലം ഹരിത ഇടനാഴി

തങ്ങളെ ബലാൽക്കാരമായി ഒഴിപ്പിക്കുമെന്ന ആശങ്കയും ഹർജിക്കാർ കോടതിയെ ധരിപ്പിച്ചു

യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ നെറ്റ് ജെ ഇ

അഭിഭാഷക വൃത്തിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിന് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇഷ്ടപ്പെടുന്നതായി ഖേതാൻ ട്വീറ്റ് ചെയ്തു